ഘട്ടത്തിൽ

ഗതിയിലേക്ക്

രാജ്യത്തെ സമ്പദ്വൃവസ്ഥയെ മോശമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി

സ്വർണമടക്കം രണ്ട് മെഡലുകൾ നിർണായക ഷൂട്ടിംഗ് മത്സരങ്ങൾ ഇന്ന്

പുതപ്പുകളും കിടക്കവിരികളുമടക്കമുള്ളവയുമായി പ്രത്യേക ട്രെയിൻ കേരളത്തിലെത്തും ഇതുകൂടാതെ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകൾ അയച്ച സഹായവസ്തുക്കളും ഉടൻ കേരളത്തിലെത്തും

പ്രളയക്കെട്ടുതിയിൽപ്പെട്ട പരമാവധി പേരെ രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം തിരുല്പനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഇവർക്കാവശ്യൂമിട്ടത് എല്ലാ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

പകർച്ചവ്യാധി തടയുന്നതിനും ആരോഗ്യപരിരക്ഷ ഉറപ്പാക്കുന്നതിനും കർമ്മപദ്ധതികൾ തയ്യാറാക്കിയതായും മുഖ്യമന്ത്രി അറിയിച്ചു ഗതാഗതം പുനഃസ്ഥാപിക്കലും കുടിവെള്ളം എത്തിക്കലുമാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ

കൂടാതെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടവർ പേര് വിവരങ്ങൾ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്യണം

പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് കൊച്ചി നാവിക ആസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേക വിമാന സർവ്വീസുകൾ ഇന്ന് ആരംഭിക്കും

സർവ്വീസുകൾക്ക് സമയക്രമമായി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ബംഗളുരുവിലേക്കും കോയമ്പത്തൂരിലേക്കുമാണ് സർവ്വീസുകൾ നടത്തുക

എന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ദീർഘദുരു ട്രെയിനുകൾ പലതും ഇന്നും റദ്ദാക്കി കെഎസ്ആർടിസി ദീർഘദൂര സർവ്വീസുകൾ തുടങ്ങി

വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അതീവ ജാഗ്രത പാലിക്കാത്തപക്ഷം ആൽോഗ്യ സംരക്ഷണം കടുത്ത വെല്ലുവിളി നേരിടുമെന്നുറപ്പാണ് മലിനജലവും ചെളിയും അടിഞ്ഞുകൂടിയ വീടുകൾ പൂർണമായി വൃത്തിയാക്കിയ ശേഷമേ വീടുകളിൽ താമസം തുടങ്ങാവൂവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു കുട്ടികളെ ഉടൻ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചെത്തിക്കരുത്

ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ ഇൻസുലിൻ പോലുള്ളവ ലഭ്യമാക്കിയശേഷമേ ക്യാമ്പുകൾ വിടാൻ പാടുള്ളൂ ചെളിയും മാലിനൃവും നീക്കാൻ തദ്ദേശസ്ഥാപനങ്ങൾ പ്രത്യേക വിഭാഗത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മരുന്നും വസ്ത്രവും മെഡിക്കൽ കിറ്റുകളും ക്യാമ്പുകളിൽ എത്തിച്ചു ഒരുമാസം നിളുന്ന സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആരോഗ്യവകുപ്പ് ഇന്നുമുതൽ പ്രളയ മേഖലകളിൽ ഊർജിതപ്രവർത്തനം തുടങ്ങും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് വള്ളങ്ങൾ തിരികെയെത്തിക്കുക മത്സ്യത്തൊഴിലാളികളുടെ മുഖ്യജീവനോപാധിയായ വള്ളങ്ങൾ സുരക്ഷിതമായി തിരികെ കൊണ്ടു വരുന്നതിന്റെ ഭാഗമായാണ് ലോറികൾ അയച്ചത് അതിനിടെ കൊല്ലം ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ക്യാമ്പുകളിൽ നിന്നും ജനങ്ങൾ വീടുകളിലേക്കു പോയിത്തുടങ്ങി കരകവിഞ്ഞൊഴുകി വെള്ളക്കെട്ടിന് ഇടയാക്കിയ കല്ലടയാറ്റിലെയും പള്ളിക്കലാറിലെയും ഇത്തിക്കരയാറിലെയും ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്

കഴിഞ്ഞ മൂന്നു ദിവസങ്ങളിലായി കുടക് മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിനിടെ മടിക്കേരിയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഇന്നലെയും മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി കുടക് മേഖല സന്ദർശിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് നേതൃത്വം നൽകി

എ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക മേഖലയെ അസ്ഥിരപ്പെടുത്തിയെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സാമ്പത്തിക അച്ചടക്കം നഷ്ടമായ കാലഘട്ടമായിരുന്നു യു

എ ഭരണകാലമെന്ന് ധനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു നിയന്ത്രണമില്ലാത്ത വായ്പാനയമാണ് ബാങ്കുകൾക്കായി നിർദ്ദേശിച്ചത്

ജെയ്റ്റ്ലി ചുണ്ടിക്കാട്ടി

വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും

പ്രതിരോധ സംവിധാനങ്ങൾ കുടൂതൽ ശക്തമാക്കുന്നതിൽ മിസൈൽ സഹായിക്കുമെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു മിസൈൽ വികസിപ്പിച്ച ഡിആർഡിഒയെ അവർ അഭിനന്ദിച്ചു

ഇന്നലെയാണ് ജപ്പാൻ പ്രതിരോധമന്ത്രി രണ്ടു ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയത്

മയക്കുമരുന്ന് ഭീഷണി നേരിടാനുള്ള സംയുക്ത നയം രൂപീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം

ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി ആപ് ങ്യ ഏ്ട്

ഇന്തോനേഷ്യയെ ഇന്ത്യ തോൽപിച്ചു മലയാളികൾക്ക് ആധിപത്യമുള്ള വനിതാ വോളിയിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയോട് തോറ്റു

നീന്തൽ കബഡി റോവിങ്ങ് ബാഡ്മിന്റൺ ടെന്നീസ് തുടങ്ങിയ മത്സരങ്ങളിലായി ഇന്ത്യയ്ക്ക് ആകെ ഒമ്പതു മെഡലുകളുണ്ട്

ബാഡ്മിന്റണിൽ ഇന്ന് കിഡംബി ശ്രീകാന്ത് ഇന്തോനേഷ്യയെയും പി

ന്യൂസ് ഡെസ്ക് ആകാശവാണി